ഇത് സംബന്ധിച്ച മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയ ശേഷം ദ്രുത പരിശോധന നടത്തിയാൽ മതിയെന്നും ഐ സി എം ആർ

ദ്രുത പരിശോധനയുടെ ഫലത്തിന്റെ കൃത്യതയിൽ കൂടുതൽ വൃക്തത വരുത്താൻ ഉണ്ടെന്നതിനാലാണ് ഇത് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കിടയിലും കൃാൻസർ വൃക്ക രോഗങ്ങൾ എച്ച് ഐ

തുടങ്ങിയ രോഗങ്ങൾക്കുള്ള ചികിത്സ മുടങ്ങരുതെന്ന് സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകം നിർദ്ദേശം നൽകിയിട്ടുണ്ട്

നഗരപരിധിയിൽ ബ്രഡ്ഫാക്ടറികൾ പാൽ സംസ്കരണ യൂണിറ്റുകൾ ധാന്യമില്ലുകൾ എന്നിവയ്ക്കും പ്രവർത്തനാനുമതി നൽകികൊണ്ട് കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് അറിയിപ്പ് നൽകി വിദ്യാർത്ഥികളുടെ പഠനവുമായി ബ്ലസ്സ്പെട്ട പുസ്തകങ്ങൾ വിൽക്കുന്ന കടകൾ ഇലക്ട്രിക്ഫാൻ പ്രിൽക്കുന്ന കടകൾ കൃഷി അനുബന്ധ ഗവേഷണ സ്മാപ്പനങ്ങൾ തേൻ സംസ്കരണ യൂണിറ്റുകൾ എന്നിവിയ്ക്കും പ്രവർത്തനാനുമതി നൽകിയിട്ടുണ്ട് വൃത്യോജനങ്ങളെ സംരക്ഷിക്കുന്നവർക്കും ഇളവുകൾ നല്കിയിട്ടുണ്ട്

മഹാരാഷ്ട്ര രാജസ്ഥാൻ മധ്യപ്രദേശ് വെസ്റ്റബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് സംഘത്തിന്റെ സന്ദർശനം ദുരന്ത നിവാരണ നിയമം അനുസരിച്ചുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ മുൻനിർത്തിയാണ് നടപടി പൊതുജനാരോഗൃ രംഗത്തെയും ദേശീയ ദുരന്തനിവാരണ അതോറിട്ടിയിലെയും വിദഗ്ധർ അടങ്ങുന്ന മന്ത്രിതല സംഘം സംസ്ഥാനങ്ങൾക്ക് കോവിഡ് വ്യാപനം പ്രതിരോധിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നല്കും അവശ്യസാധനങ്ങളുടെ ലഭ്യത സാമൂഹ്യ അകലം പാലിക്കൽ ആരോഗ്യരംഗത്തെ അടിസ്ഥാന സൌകര്യം എന്നിവയിലാണ് മന്ത്രിതലസംഘം പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്

കൊൽക്കത്തയിലും ജൽപായ്ഗുരിയിലും സംസ്ഥാനവും പ്രാദേശിക ഭരണ നേതൃത്വ വും ആവശ്യമായ സഹകരണം നൽകുന്നില്ലെന്ന് കേന്ദ്ര സംഘം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ അറിയിച്ചതിനെ തുടർന്നാണ് കേന്ദ്ര നിർദ്ദേശം

ലോക്ഡൌൺ കാലുയിളൂവിൽ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനായി കാർഷിക വൃത്തികൃൾക്ക് ഇന്ത്യ ഇളവുകൾ നൽകിയതായി യോഗത്തിൽ പ്പങ്കെടുത്ത മന്ത്രി നരേന്ദ്രസിങ് തോമർ പറഞ്ഞു

ജനങ്ങൾ ആരോഗ്യ പ്രവർത്തകരോടും സുരക്ഷാ ഉദ്യോഗസ്ഥരോടും സഹകരിക്കണമെന്നും അദ്ദേഹം ഡൽഹിയിൽ പറഞ്ഞു കോവിഡിനെതിരായ പോരാട്ടത്തിൽ ജാതി മതഭേദമന്യേ എല്ലാവരും പ്രവർത്തിക്കണമെന്നും ശ്രീ നഖ്വി അഭിപ്രായപ്പെട്ടു

കുറഞ്ഞ സ്ഥലത്ത് ക്കൂടുതൽ വിളവ് ഉത്പാദിപ്പിക്കാനാണ് ശ്രമമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു

പാർലമെന്റ് മന്ദിരത്തിൽ സംസ്ഥാന നിയമസഭകളിലെ പ്രിസൈഡിംഗ് ഓഫീസർമാരുമായി ക്ട് ഇന്നലെ നടത്തിയ വീഡിയോ കോൺഫറൻസിലാണ് സ്പീക്കർ ഇക്കാര്യം പറഞ്ഞത്

അതിർത്തി പ്രദേശമായ ജില്ലയിൽ വാഹനഗതാഗതം ഗണ്യമായി വർദ്ധിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനാലാണ് നടപടിയെന്ന ജില്ലാ ഭരണകൂടം അറിയിച്ചു

ലക്ഷണങ്ങളെക്കുറിച്ച് ശരിയായ അനുഭവ വിവരങ്ങൾ ലഭിക്കുന്നതിന് എല്ലാവരും സർവ്വേയിൽ പങ്കെടുക്കണമെന്ന് കേന്ദ്രആരോഗൃമന്ത്രാലയം ടിറ്ററിൽ അറിയിച്ചു

ഇതിന്റെ ഭാഗമായി ര ക്തബാങ്കുകളിൽ ആവശ്യത്തിന് രക്തം ഉറപ്പാക്കണമെന്ന് ആവ ശൃപ്പെട്ട് കേന്ദ്ര ആരോഗൃ കുടുംബ ക്ഷേമ മന്ത്രി ഡോ

പൊതുജനങ്ങൾക്കുള്ള സംശയങ്ങൾക്ക് ഈ ടിറ്റർ ഹാന്റിലൂടെ വിദഗ്ധർ മറുപടി നല്കും

ഇന്നലെ രാജ്യത്തെ റോട്ടറി പ്പ്ലബ് അംഗങ്ങളുമായി വീഡിയോ കോൺഫറൻസിലൂടെ സംവദിക്കുകയായിരുന്നു അദ്ദേഹം